ഇടുക്കി ഡാം തുറക്കാൻ വൈദ്യുതി ബോർഡ് ഇടുക്കി ജില്ലാ കലക്ടർക്ക് നിർദേശം നല്കി കോഴിക്കോട് കക്കയം ഡാം ഉച്ചയോടെ തുറക്കും വയനാട് ബാണാസുര സാഗർ അണ ക്കെട്ട് വൈകീട്ടും തുറക്കും ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സിപിഐഎം ഇടപെടി ല്ലെന്ന് സംസ്ഥാന വ് സെക്രട്ടറി കോടി യേരി ബാലകൃഷ്ണൻ

രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക്

ങ്ങ ൽ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും ചുഴലിക്കാറ്റിനും സാധ്യ തയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഗവ

അറബിക്കടലിന്റെ തെക്ക് കിഴക്കായി ശ്രീലങ്കക്ക് സമീപം ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാഹചര്യങ്ങൾ ഒരുങ്ങിയ തായി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ന്യൂഡൽഹിയിൽ അറി യിച്ചു

ഇതിന്റെ സ്വാധീനം കാരണം സംസ്ഥാനത്തൂം ലക്ഷദ്വീപിലും അടുത്ത അഞ്ച് ദിവസത്തേക്ക് അതിശക്തമായ മഴക്ക് സാധൃത യുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണവകുപ്പ് അറിയിച്ചു മത്സ്യ ത്തൊഴിലാളികൾ ഇന്നു മുതൽ കടലിൽ പോക്കരുതെന്നും ദീർഘ നാളത്തേക്ക് മത്സ്യബന്ധനത്തിന് പോയവർ ഇന്ന് തിരികെ എത്ത ണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മറ്റുന്നാൾ മഞ്ഞ അലർട്ടായിരിക്കും മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അണക്കെട്ടുകളിലെ ജല നിരപ്പ് നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥർക്ക് തിരുവനന്തപുരത്ത് ചേർന്ന ദുരന്തനിവാരണ അതോറിറ്റിയോഗം നിർദ്ദേശം നൽകി

കാലാവസ്ഥാ ന്യൂനമർദ്ദ മുന്നറിയിപ്പുകൾ ഇവർക്ക് ലഭി ക്കാൻ സാധ്യത കുറവാണെന്ന് ഫിഷറീസ് കൺട്രോൾ റൂം കൊച്ചിയിൽ പറഞ്ഞു കോസ്റ്റ്ഗാർഡും നേവിയും തിരിച്ചിൽ നടത്തുന്നുണ്ട്

ഇടുക്കി ഡാം തുറക്കണ മെന്നാവശ്യ പ്പെട്ട് സംസ്ഥാന വൈദ്യൂതി ബോർഡ് ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി ജല നിരപ്പ് വിലയിരുത്തിയ ശേഷം ഇന്നു വൈകീട്ടോ നാളെയോ അണക്കെട്ട് തുറന്നേക്കുമെന്നാണ് സൂചന കനത്ത മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കോഴി ക്കോട് കക്കയം ഡാം ഇന്നുച്ചയോട്ടെ ്തുറക്കും കുറ്റ്യാടി പുഴ യുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധി കൃതർ നിർദേശിച്ചു വയനാട് ബാണാസുര സാഗർ അണക്കെട്ടും വൈകീട്ട് തുറ ക്കുമെന്ന് അധികൃതർ അറിയിച്ചു മുൻകരുതൽ എന്ന നിലയി ലാണ് ഷട്ടർ തുറക്കുന്നത് കനത്തമഴ് തുടരുന്ന മലപ്പുറം ഉൌർങ്ങാട്ടീരിയിൽ ഉരുൾപ്പൊട്ടി ഓടക്കയം വീട്ടിക്കുണ്ട് മലയിലാണ് ഉരുൾപ്പൊട്ട ലുണ്ടായത്

പ്രദേശവാസികൾ മാറി താമസിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സിപിഐഎം ഇടപെടി ല്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വൃക്തമാക്കി

വിശ്വാസികളുടെ വിശ്വാസത്തെ അടിച്ച മർത്താൻ സിപിഐഎം ഇടപെടുന്നു എന്നാരോപിക്കുന്നത് അസംബന്ധമാണെന്ന് അദ്ദേഹം ദേശാഭിമാനി ദിനപത്രത്തിലെ ലേഖനത്തിൽ പറഞ്ഞു

സുരക്ഷാ ആവശ്യങ്ങൾക്കായി വനിതാ പൊലീസു കാർക്ക് പ്രത്യേക പരിശീലനം നൽകും

പൊലീസ് സേനയിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലെന്നും ജോലിയും വിശ്വാസവും രണ്ടാണെന്നും ഡി ജി പി വ്യക്തമാക്കി ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ച കോടതി വിധി പുനഃപരിശോധിക്കണമെന്നാവശൃപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മ റ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ ഏകദിന ഉപവാസം ആരംഭിച്ചു പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു

ഇന്നലെ സിപിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറലിന്റെ ലൈസൻസ് ലഭിച്ചതോടെ യാണ് ഉദ്ഘാടന തിയ്യതി തീരുമാനിച്ചത്

ഇതിനു പുറമെ നാലു ഇ വീസ കൌണ്ടറുകളും ഒരുക്കിയിട്ടുണ്ട്

ആധുനിക സൌകര്യങ്ങളോടെ വിമാനത്താവളം ഒരുക്കിയത്

അതേസമയം വിമാനത്താവളം സന്ദർശിക്കാൻ അനുമതി ലഭിച്ചതിനെ തൂടർന്ന് പൊതുജനങ്ങൾ എത്തി തുടങ്ങി രാവിലെ പത്ത് മുതൽ വൈകീട്ട് നാല് വരെയാണ് സന്ദർശനാനുമതി

നാലു ദിവസത്തെ രാജ്യാന്തര ശാസ്ത്രമേളയ്ക്ക് ഇന്ന് ലക്നൌവിൽ തുടക്കമാകും നാളെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മേള ഉദ്ഘാടനം ചെയ്യും ശാസ്ത്രം മാറ്റത്തിന് എന്ന താണ് ഈ വർഷത്തെ ശാസ്ത്രമേളയുടെ പ്രമേയം മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരി ക്കുമെന്ന ബി എസ് പിയുടെ തീരുമാനം കോൺഗ്രസിന്റെ തെര ഞ്ഞെടുപ്പ് സാധ്യതയെ ദോഷകരമായി ബാധിക്കില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ന്യൂഡൽഹിയിൽ അഭിപ്രായപ്പെ ട്ടു

ഈയാഴ്ച ആദ്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പി ഒരു പാർട്ടിയുമായും സഖ്യമുണ്ടാക്കില്ലെന്ന് മായാവതി വ്യക്ത മാക്കിയത്

ഇന്ധലവില വർദ്ധനയിൽ സാധാരണക്കാർ ദുരിതത്തി ലാണെന്ന് പ്രധാനമന്ത്രി അറിയണമെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

ശ്രീനഗറിലെ കർഫാലി മൊഹല്ല ഭാഗത്താണ് ഭീക രർ വെടിവെച്ചത് ഒരാൾക്ക് സാരമായി പരിക്കേറ്റു രാജ്കോട്ടിൽ വെസ്റ്റിൻഡീസിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക്

നായകൻ വിരാട് കോഹ്ലി സെഞ്ചുറി നേടി ഐഎസ്എൽ ഫുട്ബോളിൽ കൊച്ചിയിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ്സിയെ നേരിടും

ആദ്യമത്സരത്തിൽ എ ടി കെയെ തകർത്തതിന്റെ ആത്മവിശ്വാസ വുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ കളിക്കാനിറങ്ങുന്നത്

രൂപയുടെ മൂലൃം ഇടിയുന്ന സാഹചരൃത്തിൽ പലിശനി രക്കുകൾ ഉയർത്തിയേക്കുമെന്നാണ് വിലയിരുത്തൽ പെട്രോ ളിയം വില ഉയരുന്നതും ബാങ്കുകളിലെ കിട്ടാക്കടം വർദ്ധിക്കു ന്നതും സമ്പദ് വൃവസ്ഥയെ ദോഷകരമായി ബാധിച്ചേക്കുമെന്നും വിപണി കേന്ദ്രങ്ങൾ പറയുന്നു കേരളത്തിലെത്തിയ റോഹിങ്കൃൻ കൂടുംബത്തെ പൊലീസ് ഹൈദരാബാദിലേക്ക് തിരിച്ചയച്ചു വ്യാഴാഴ്ച വിഴിഞ്ഞത്തെ ത്തിയ അഞ്ചംഗ കുടുംബ ത്തെ ഉന്നതപൊലീസ് സംഘം ചോദൃം ചെയ്തിരുന്നു മഹാരാഷ്ട്രയിലും ഹൈദരാബാദിലും ജോലി ചെയ്ത ശേഷം മെച്ചപ്പെട്ട തൊഴിൽ തേടി സംഘം കേര ളത്തിലെത്തിയതാണ് ഇവരിൽ നിന്ന് യു എൻ അംഗീകൃത തിരി ച്ചറിയൽ രേഖകൾ ലഭിച്ച സാഹചരൃത്തിലാണ് ഹൈദരാബാദി ലേക്ക് മടക്കി അയച്ചത് റോഹിങ്കൃകളെന്ന് സംശയിച്ച് തിരുവനന്തപുരത്ത് കസ്റ്റഡി യിലെടുത്ത ആറുപേർ അസം സ്വദേശികളാണെന്നും പൊലീസ് അറിയിച്ചു തിരുവനന്തപുരം തമ്പാനൂർ പൊലീസാണ് റെയിൽവെ സ്റ്റേഷൻ പരിസരത്തു നിന്ന് ഇവരെ രാവിലെ കസ്റ്റ ഡിയിലെടുത്ത് ഇവരിൽ ചിലരുടെ കൈവശം തിരിച്ചറിയൽ കാർഡ് ഉണ്ടെന്ന് പൊലീസ് അറിയിച്ചു

കോയമ്പത്തൂർ സ്വദേശിയായ ഡാനിഷ് പിടികി ട്ടാപ്പുള്ളികളുടെ പട്ടികയിലുണ്ട് നിലമ്പൂർ അട്ടപ്പാടി വയനാട് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ പ്രവർത്തനം താമരശ്ശേരിയിൽ കാറും ലോറിയും കൂട്ടി ഇടിച്ച് കാരാട്ട് റസാഖ് എം എൽ എയുടെ സഹോദരൻ കൊടുവള്ളി സ്വദേശി കാരാട്ട് അബ്ദുൾ ഗഫൂർ മരിച്ചു രണ്ടുപേർക്ക് പരിക്കേറ്റു മൈസൂരിൽ നിന്നും വരികയായിരുന്ന ഇവർ സഞ്ചരിച്ച കാറും ലോറിയും കൂട്ടി ഇടിച്ച് പുലർച്ചെ മൂന്നരയോടെയായിരുന്നു അപകടം

സ്കൂളിൽ നിർമ്മാണ് പ്രവർത്തനങ്ങൾ നടത്തുക യായിരുന്ന രണ്ടു പേർക്കാണ് കടിയേറ്റത് ആകാശവാണി ദേശീയസംഗീതസമ്മേളനം ഇത്തവണ തൃശൂ രിലും നടക്കും വി രമേശ് വി സുബ്രഹ്മണ്യം എന്നിവരുടെ നാഗ സ്വര കച്ചേരിയും ബാലാമണി ഈശ്വറിന്റെ സംഗീത കച്ചേരിയും ഇതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കും നാളെ വൈകീട്ട് തൃശൂർ റീജണൽ തിയ്യേറ്ററിലായിരിക്കും പരിപാടി താനൂരിൽ മത്സൃതൊഴിലാളി യുവാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ സൌജത്തിനെ പൊലീസ് കസ്റ്റ ഡിയിലെടുത്തു താനൂർ മണലിപ്പൂഴ സ്വദേശി സവാദിനെ വ്യാഴാഴ്ച വീടിന്റെ സിറ്റൌട്ടിൽ മരിച്ചനിലയിൽ കണ്ടെത്തുകയാ യിരുന്നു